എഫ് ജവാന്മാർക്ക് അന്ത്യാഞ്ജലി വയ്നാട്ടിലെ വി

ജെ പി ഇന്ന് രാജ്യവ്യാപകമായി അനുശോചന യോഗങ്ങൾ സംഘടിപ്പിക്കും സ്വന്തം വിമാനക്കമ്പനി എന്ന് നിർദ്ദേശം വീണ്ടും പരിഗണിക്കു മെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിമന്റ് വില നിയന്ത്രണം ചർച്ച ചെയ്യാൻ മറ്റന്നാൾ ഡീലർമാ രുടെ അടിയന്തിര യോഗം വിളിക്കുമെന്ന് മന്ത്രി ഇ

ജയരാജൻ

ദേശീയ സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടിക ളുടെ വിഭാഗത്തിലും കേരളം മുന്നേറുന്നു

വി വസന്തകുമാർ ഉൾപ്പെടെ വീരയോ ദ്ധാക്കളുടെ മൃതദേഹങ്ങൾ പതിനായിരങ്ങളുടെ സാന്നിധ്യ ത്തിൽ സംസ്കരിച്ചു വീരമൃത്യു വരിച്ച മലയാളി ജവാൻ വയനാട് മേപ്പാടിക്ക ടുത്ത് തൃക്കൈപ്പറ്റയിലെ വി വി വസന്തകുമാറിന്റെ സംസ്കാ രത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ എത്തിയിരുന്നു സംസ്ഥാന സൈനിക ബഹുമതികളോടെ സമുദായ ശ്മശാന ത്തിലായിരുന്നു വസന്തകുമാറിന്റെ സംസ്കാരം കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനം സംസ്ഥാന മന്ത്രിമാരായ ഇ പി ജയരാജൻ എ കെ ശശീന്ദ്രൻ എം

എ മാരടക്കം ജനപ്രതിനിധികൾ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെ ത്തിയിരുന്നു ഉച്ചയോടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം ലക്കിടി സ്കൂളിൽ പൊതു ദർശനത്തിന് വെച്ചു

കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം സി

എഫ് സംഘം വസന്തകുമാറിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു ഇന്ന് രാവിലെ മന്ത്രി എ കെ ബാലൻ വസന്തകുമാറിന്റെ വീട് സന്ദർശിക്കും ജമ്മു കശ്മീരിലെ പുൽവാമ ഭീകരാക്രമണത്തിൽ വീര മൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ബി ജെ പി ഇന്ന് രാജ്യവ്യാപകമായി അനുശോചനയോഗങ്ങൾ സംഘടി പ്പിക്കും ജില്ലാ ആസ്ഥാനങ്ങളിലെ അനുശോചന യോഗങ്ങളിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് എതിരെ ബി

പി പ്രവർത്തകർ പ്രതിജ്ഞയെടുക്കും വീരമൃത്യു വരിച്ച സി

എഫ് സൈനികരുടെ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ബി ജെ പി മാധ്യമ വിഭാഗം മേധാവി അനിൽ ബലൂനി ന്യൂഡൽഹി യിൽ വ്യക്തമാക്കി സൈനികരുടെ ആത്മത്യാഗം പ്രെറുതെയാ വില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന യാഥാർത്ഥ്യമാകു മെന്നും അദ്ദേഹം പുറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ച സി

കേരളത്തിന് സ്വന്തം വിമാനക്കമ്പനി എന്ന നിർദ്ദേശം യാഥാർത്ഥ്യമാക്കുന്നതിന് വീണ്ടും ആലോചിക്കുമെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിൽ ദുബായിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ദുബായിൽ വിജയകരമായി നടക്കുന്ന സ്മാർട്ട് പൊലീസ് സ്റ്റേഷൻ സംവിധാനം സംസ്ഥാനത്ത് നടപ്പാക്കാൻ ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സിമന്റ് വില നിയന്ത്രണം ആലോചിക്കാൻ മറ്റന്നാൾ സിമന്റ് ഡീലർമാരുടെ യോഗം വിളിക്കുമെന്ന് മന്ത്രി ഇ

ഗവൺമെന്റ് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മലബാർ സിമന്റ് സിന്റെ വിലയ്ക്ക് തന്നെ മറ്റ് സിമന്റുകളും ലഭ്യമാക്കാൻ കഴിയുമോ എന്ന കാര്യം യോഗത്തിൽ പരിശോ ധിക്കുമെന്ന് മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു വ്യവസായ വകുപ്പിന്റെ പരാതി പരിഹാര അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലബാർ സിമന്റ് സിന്റെയും ട്രാവൻകൂർ സിമന്റ് സി ന്റെയും ഉല്പാദനം കൂട്ടിയാൽ മാത്രമേ മറ്റ് ഉല്പാദകരുടെ ഏകപക്ഷീയമായ വില വർദ്ധന നിയന്ത്രിക്കാൻ കഴിയൂ എന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു രണ്ട് ഫാക്ട്ടറികളിലെയും ഉല്പാദനം ആറു മാസത്തിനകം ഇരട്ടിയാക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യ മിടുന്നതെന്നും ജയരാജൻ വെളിപ്പെടുത്തി സംസ്ഥാനത്തെ ആദ്യ മെട്രോ പൊലീസ് സ്റ്റേഷൻ മുഖ്യ മന്ത്രി പിണറായി ്വിജയൻ ഇന്ന് കളമശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ വയനാട് തിരുവനന്തപുരം ഇടുക്കി പത്ത നംതിട്ട കോഴിക്കോട് ജില്ലകളിലെ പുതിയ പൊലീസ് സ്റ്റേഷ നുകളും അദ്ദേഹം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യും പ്രതിസന്ധിയിൽ കഴിയുന്ന കർഷക സമൂഹത്തെ അതിജീ വനത്തിന് പ്രാപ്തമാക്കാൻ കൂട്ടായ ശ്രമങ്ങൾ വേണമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ കാസർകോട്ട് ആവശ്യപ്പെട്ടു

കാസർകോട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ പുനർനവ കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കർഷകരുമായി മികച്ച ബന്ധം സ്ഥാപിച്ച് കാർഷിക ഗവേ ഷണ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിൽ ഗവേഷണ കേന്ദ്രത്തിന്റെ പങ്കിനെ മന്ത്രി അഭിനന്ദിച്ചു സ്വന്തം വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് സഹകരണ വകുപ്പ് രണ്ടായിരം ഫ്ളാറ്റുകൾ നിർമ്മിച്ച് നിൽകുമെന്ന് മന്ത്രി കടകം പള്ളി സുരേന്ദ്രൻ അറിയിച്ചു മൂവാറ്റുപുഴ ആവോലിയിൽ മൾട്ടി പർപ്പസ് സഹ

ഗവൺമെന്റോ സ്വകാര്യ വ്യക്തിക്ളോ നൽകുന്ന ഭൂമിയിൽ ആയി രിക്കും വീടുകളുടെ നിർമ്മാണം

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയി ക്കുന്ന എൽ

എഫ് വടക്കൻ മേഖലാ ജാഥ കാസർകോട്ട് സി

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാ ടനം ചെയ്തു

ജെ പി ഒരിക്കൽക്കൂടി ഭരണത്തിലെത്തിയാൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇല്ലാതാകുമെന്ന് അദ്ദേഹം പറ ഞ്ഞു ജമ്മു കശ്മീരിലെ ഭീകരാക്രമണങ്ങൾ രാഷ്ട്രീയവൽക്കരി ക്കരുതെന്നും ഭീകരപ്രവർത്തകരുടെ മതത്തിന്റെ പേരിൽ അതിനെ വർഗ്ഗീയവൽക്കരിക്കാൻ ശ്രമിക്കരുതെന്നും യെച്ചൂരി ആവശൃപ്പെട്ടു വടക്കൻ മേഖലാ ജാഥയും തിരുവനന്തപുരത്തു നിന്ന് വ്യാഴാഴ്ച ആരംഭിച്ച ജാഥയും അടുത്തമാസം രണ്ടിന് തൃശൂരിൽ സമാപിക്കും വാജ്പേയി ഗവൺമെന്റ് മുമ്പ് മോചിപ്പിച്ചവരാണ് ഇന്ന് രാജ്യത്തിനെതിരെ ആക്രമണം നടത്തുന്നതെന്ന് മുൻ പ്രധാന മന്ത്രി എച്ച്

പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ മറച്ചുവെക്കാനാണ് ബി ജെ പി രാജ്യത്ത് മതവികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നതെന്നും ദേവെഗൌഡ കുറ്റപ്പെടുത്തി ശബരിമല വിഷയം ഉന്നയിച്ച് കേര ളത്തിൽ ബി

പി മുതലെടുപ്പിന് ശ്രമിച്ചെങ്കിലും തദ്ദേശ ഉപ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ മുന്നേറ്റം സംസ്ഥാ നത്തെ ജനങ്ങളുടെ പക്തയാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം വിലയിരുത്തി ജനതാദൾ എസ് സംസ്ഥാന റാലിയും പൊതു സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ദേവെഗൌഡ സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിരം ദിവസ പൂർത്തീക രണ ആഘോഷങ്ങൾ വരുന്ന ബുധനാഴ്ച കോഴിക്കോട്ട് മുഖ്യ മന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ബീച്ചിലെ വേദിയിലായിരിക്കും സംസ്ഥാനതല ഉദ്ഘാടനം ചട ങ്ങ്

സേഫ് കേരള പദ്ധതിയും സമാപന ചട ങ്ങിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും എല്ലാ ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും മന്ത്രിമാരുടെയും ജനപ്രതിനി ധികളുടെയും നേതൃത്വത്തിൽ ആയിരം ദിനാഘോഷ പരിപാ ടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നിരവധി പദ്ധതികളുടെ പൂർത്തീക രണവും ഉദ്ഘാടനവും ഇതിന്റെ ഭാഗമായി നടക്കും

പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ചയാണ് വന്ദേ ഭാരത് ട്രെയിൻ സർവ്വീസ് ഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത ത് ദേശീയ സീനിയർ സ്കൂൾ മീറ്റിൽ ആൺകുട്ടികളുടെ വിഭാ ഗത്തിലും കേരളം മുന്നേറ്റം തുടരുന്നു

സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിരം ദിവസ പൂർത്തീകരണത്തിന്റെ ഭാഗ മായാണ് വോളിബോൾ അക്കാദമി കായികതാരങ്ങൾക്ക് സമർപ്പിക്കുന്നത് സ്വദേശി ദർശൻ പദ്ധതിയിലെ കേരള സ്പിരിചൽ സർക്യൂ ട്ടിന്റെ സംസ്ഥാനതല നിർമ്മാണ പ്രവൃത്തി പത്തനംതിട്ടയിൽ ആരംഭിച്ചു

കേരളത്തിൽ ഇത്തരം തീർത്ഥാടന പദ്ധതികൾക്ക് സാധ്യത ഏറെയാണെന്ന് അദ്ദേഹം വിലയിരുത്തി സ്വദേശി ദർശൻ പ്രസാദ പദ്ധതികൾ ദേശീയോദ്ഗ്രഥനത്തിന് ഏറെ സഹായകമാകുമെന്ന് കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെ ട്ടു ഇടുക്കി പെരിഞ്ചാൻകുട്ടിയിൽ കർഷകനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി

ഉച്ചയ്ക്കുശേഷം മാർത്തോമാ സഭാ പരമാദ്ധ്യ ക്ഷൻ ഡോ ജോ സഫ് മാർത്തോമാ മെത്രോപ്പൊലീത്ത കൺവെൻഷന്റെ സമാപന സന്ദേശം നൽകൂം

ഫിലി പ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപ്പൊലീത്ത് സമാപന പ്രാർത്ഥന നടത്തും കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമലയിൽ ഇന്ന് രാത്രി നടയടയ്ക്കും പുലർച്ചെ മുതൽ ഭക്തരുടെ വൻ തിര ക്കാണ് സന്നിധാനത്ത് ഇന്ന് പതിവ് പൂജകൾക്ക് പുറമെ വിശേ ഷാൽ പൂജകളും ഉണ്ടായിരിക്കും

സാഹി തൃകാരന്മാരുടെ ഒത്തുചേരലും പ്രഭാഷണവും ആഘോഷങ്ങ ളുടെ ഭാഗമായി നടത്തി സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതു അറിയിപ്പുകൾ ഇനി കന്നട തമിഴ് ഭാഷകളിലും പ്രസിദ്ധീകരിക്കും പബ്ലിക് റിലേ ഷൻ വകുപ്പിന്റെ പ്രസ് റിലീസ് വിഭാഗം മുഖേന നടപ്പാക്കുന്ന പദ്ധതി നാളെ മുതൽ നടപ്പിൽ വരും നാടിനൊപ്പം നന്മയോടൊപ്പം എന്ന മുദ്രാവാക്യവുമായി എം

രാഘവൻ എം പി നയിക്കുന്ന ജനഹൃദയ യാത്രയ്ക്ക് നാളെ തുടക്കം കോഴിക്കോട് നരിക്കുനിയിൽ എ

സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും